പി ജയരാജൻ

എ യുടെ ശബരിമല സംരക്ഷണ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും ും ശബരിമലയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിത സമരമാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ്ത് ശബരിമല വിഷയം വഷളാക്കുന്നത് ഗവൺമെന്റും സി

എമ്മുമാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല

സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാവർക്കും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ അറിയിച്ചു എല്ലാവർക്കും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് ബാധ്യസ്ഥ മാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു എന്നാൽ വിശ്വാസികളുമായി ഗവൺമെന്റ് ഏറ്റുമുട്ടലിനില്ല തെറ്റിദ്ധരിക്കപ്പെട്ട വിശ്വാസികളുമായി ഇനിയും ഗവൺമെന്റ് ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും മന്ത്രി വൃക്തമാക്കി

ഡി എ യുടെ ശബരിമല സംരക്ഷണ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും

ജെപി സംസ്ഥാന പ്രസിഡണ്ട് പി

ശ്രീധരൻപിള്ള നേതൃത്വം നൽകുന്ന യാത്ര തിരുവനന്തപുരം പട്ടത്തുനിന്ന് ആരംഭിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാത്ര സമാപിക്കും മുതിർന്ന പാർട്ടി നേതാവ് മുരളീധർ റാവു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന നേതാക്കൾക്ക് പുറമെ ദേശീയ സംസ്ഥാനതല നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്

ശ്രീധരൻപിള്ള പറഞ്ഞു

ജെ പി യെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല സംരക്ഷണയാത്രയുടെ തുടക്കത്തിന് മുമ്പ് മാധ്യമങ്ങ ളോട് സംസാരിക്കുകയായിരുന്നു ശ്രീധരൻ പിള്ള ശബരിമലയുടെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്നത് വിശ്വാസ സംരക്ഷണ സമരമല്ലെന്നും രാഷ്ട്രീയ പ്രേരിത സമരമാണെന്നും സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി കേവലമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കുവേണ്ടി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചും ചൂഷണം ചെയ്തും നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ അത്യന്തം അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ സി

ഐ എം ബ്രാഞ്ച് സെക്രട്ടറിമാർവരെ പങ്കെടുത്ത നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി രാഷ്ട്രീയ കാരണങ്ങളാലാണ് ബി

പി യും കോൺഗ്രസും ഇത്തരത്തിൽ സമരം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെ തുടർന്ന് രാഷ്ട്രീയ ബലാബലത്തിൽ എൽ ഡി എഫ് കരുത്താർജ്ജിച്ച് വരികയാണെന്നും കോടിയേരി അവകാശപ്പെട്ടു ശബരിമല വിഷയം കൂടുതൽ വഷളാക്കുന്നത് ഗവൺമെന്റും സി

എമ്മുമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു

എസ് എസും ബി

ഇത്തരം ഗൂഢ നീക്കങ്ങളെ കോൺഗ്രസ് എതിർക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു വിശ്വാസം സംരക്ഷിക്കുന്നതിന് യു ഡി

സുന്നി പള്ളികളിൽ ആര് പോകണ മെന്ന് തീരുമാനിക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണനോ സി

എമ്മോ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭൂരിപക്ഷത്തോടെ തിരിച്ചുവരുമെന്നും പ്രതിപക്ഷനേതാവ് പറഞ്ഞു ശബരിമല വിഷയം രാഷ്ട്രീയ പ്രശ് നമാക്കി ഗുരുതരമാക്കരുതെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡണ്ട് എ പത്മകുമാർ പറഞ്ഞു

മുൻവിധിയില്ലാതെയാണ് ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയെ മറ്റൊരു അയോധ്യയാക്കി മാറ്റാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്ന് കെ

നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ധൃതി പിടിച്ച തീരുമാനങ്ങളുണ്ടാവരുതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

ദേവസ്വം ബോർഡ് വിളിച്ച നാളത്തെ സമവായ ചർച്ചയിൽ പന്തളം രാജകൊട്ടാരം പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും കന്യാസ്ത്രീ പീഡനക്കേസിൽ മുൻ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ഹൈക്കോടതി സോപാധിക ജാമ്യം അനുവദിച്ചു

കേരളത്തിൽ പ്രവേശിക്കരുതെന്നും രണ്ടാഴ്ചയിലൊരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്നും കോടതി നിർദേശിച്ചു സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നു പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും വേണം തെളിവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡിയിൽ കഴിയേണ്ട ആവശ്യമില്ലെന്ന് കാണിച്ചായിരുന്നു ജാമ്യഹർജി എന്നാൽ ഗവൺമെന്റ് ജാമ്യാപേക്ഷയെ എതിർത്തു ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു റഫാൽ ഇടപാടിലെ അഴിമതി അന്വേഷിക്കണ മെന്നാവശ്യപ്പെട്ടും ഇന്ധനവില വർദ്ധനക്കെതിരെയും ജില്ലകളിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ഇന്ന് കോൺഗ്രസ് ധർണ്ണയും പൊതുയോഗവും നടത്തുകയാണ് കോഴിക്കോട്ട് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ധർണ ഉദ്ഘാടനം ചെയ്തു എ ഐ സി സി ആഹ്വാനമനുസരിച്ച് കെ പി സി സി നടത്തുന്ന സമരത്തിന്റെ രണ്ടാം ഘട്ടമായാണ് ധർണ സംഘടിപ്പിച്ചത് ചേകന്നൂർ മൌലവി തിരോധാനക്കേസിൽ ഒന്നാംപ്രതി പി

ഹംസയെ ഹൈക്കോടതി വെറുതെ വിട്ടു കൊച്ചിയിലെ സി ബി

ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം കണ്ടെടുക്കുകയോ മൃതദേഹം കണ്ടെടു ക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിലോ മരിച്ചുവെന്നതിന് വ്യക്തമായ തെളിവ് കണ്ടെത്തണമെന്ന കോർപ്പസ് ഡെലിക്റ്റി സിദ്ധാന്തപ്രകാരമാണ് വിധി അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടതായി കോടതി പറഞ്ഞു മൌലവിയെ വധിച്ചുവെന്നത് അനുമാനം മാത്രമാണെന്നും കോടതി പറഞ്ഞു

മീ ടു ആരോപണം നിഷേധിച്ച കേന്ദ്രമന്ത്രി എം ജെ അക്ബർ പരാതി ഉന്നയിച്ച ആറ് മാധ്യമ പ്രവർത്തകർ ക്കെതിരെ നിയമ നടപടിയ്ക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇവർക്കെതിരെ മാനനഷ്ട ക്കേസ് കൊടുക്കാനാണ് മന്ത്രിയുടെ തീരുമാനം നിയമ നടപടി നേരിടാൻ തയ്യാറാണെന്ന് മാധ്യമ പ്രവർത്തകരും അറിയിച്ചിട്ടുണ്ട് വിദേശകാര്യ സഹമന്ത്രി എം

അക്ബറിനെ തിരായ മീടു ആരോപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌനം പാലിക്കുന്നത് ദുരൂഹമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഈ പ്രശ്നം ഉയർന്നുവന്നപ്പോൾ മുതൽ പ്രധാനമന്ത്രി മൌനത്തിലാണെന്ന് മുതിർന്ന പാർട്ടി നേതാവ് ആനന്ദ് ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇന്ന് അന്താരാഷ്ട വൈറ്റ് കെയിൻ ദിനം കാഴ്ച വൈകല്യമുള്ളവരുടെ സഞ്ചാരസ്വാതന്ത്രൃം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും വൈറ്റ് കെയിൻ റാലിയും സെമിനാറും സമ്മേളനവും നടത്തി വരികയാണ് സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ കെ രാജൻ എം എൽ എ നിർവ്വഹിച്ചു

ഭൂരിപക്ഷ അഭിപ്രായം കണക്കിലെടുത്ത് സംഘടനയെടുത്ത തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം പ്രസിഡണ്ടായ മോഹൻലാലിന്റെ തലയിൽ കെട്ടിവെയ്ക്കുന്നത് ശരിയല്ലെന്നും ഔദ്യോഗിക വക്താവ് ജഗദീഷ് നൽകിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു

ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കണമെന്നാണ് സംഘടനയുടെ അഭിപ്രായമെന്നും വിഷയം ചർച്ചചെയ്യാൻ അടിയന്തര ജനറൽ ബോഡി യോഗം വിളിക്കുമെന്നും വാർത്താകുറിപ്പിൽ പറയുന്നു

ബൽറാം കുമാർ ഉപാധ്യായ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

കോഴിക്കോട് റേഞ്ചിലും കാസർകോടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും ഐ ജി അറിയിച്ചു പാലക്കാട് ജില്ലയിലെ അയ്യംകുളം പെരുമല കല്ലേക്കാട് അംബേദ്ക്കർ കോളനികളുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി എ

അംബേദ്കർ സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി രൂപ വീതം കോളനികളുടെ വികസനത്തിനായി വിനിയോഗിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഗവൺമെന്റ് അൺ എയ്ഡഡ് വിദ്യാലയങ്ങൾക്കും മറ്റന്നാൾ അവധി പ്രഖ്യാപിച്ചു നാളെ വൈകിട്ട് പുസ്തകപൂജ ആരംഭിക്കുന്നതി നാലാണ് അവധി പകരം മറ്റൊരു ദിവസം പ്രവൃത്തിദിനമായിരിക്കുമെന്നും എന്നാണെന്ന് പിന്നീട് അറിയിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാൻ തിരുവന്തപുരത്ത് പറഞ്ഞു കേൾവിശേഷി നഷ്ടപ്പെട്ടവർക്കായി സംഘടിപ്പിക്കു ന്ന ജില്ലാതല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച കോഴിക്കോട്ട് നടക്കും ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫ് ദി ഡഫിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് പോളിടെക്നിക് ഗ്രൌണ്ടിലാ യിരിക്കും മത്സരങ്ങൾ കൊല്ലത്ത് സമാപിച്ച ദീൻ ദയാൽ കേരള കബഡി ലീഗിൽ പുരുഷവിഭാഗത്തിൽ സായി കേരളയും വനിതാവിഭാഗത്തിൽ എസ്

ബി ഹിമാലയവും ജേതാക്കളായി ഇതര സംസ്ഥാനങ്ങളിലെ താരങ്ങൾ ഉൾപ്പടെ ലീഗിൽ പങ്കെടുത്തിരുന്നു പ്രകൃതി വാതകം ഉപയോഗിച്ച് ബസ്സുകൾ ഓടിക്കുന്നതിന് കെ

സി യ്ക്ക് പിന്തുണ നൽകാൻ പെട്രോനെറ്റ് എൽ

ജിയിലേക്ക് മാറ്റാൻ സഹായം നൽകാമെന്ന് പെട്രോനെറ്റ് കെ

സി യെ അറിയിച്ചിട്ടുണ്ട് വിദ്യാരംഭം കലോത്സവത്തിനും വിദ്യാരംഭച്ചടങ്ങു കൾക്കുമായി തിരൂർ തുഞ്ചൻ പറമ്പിൽ ഒരുക്കങ്ങളായി മറ്റന്നാൾ വൈകിട്ട് എം ടി വാസുദേവൻ നായർ കലോത്സവം ഉദ്ഘാടനം ചെയ്യും

ടി കെ പി രാമനുണ്ണി ആലങ്കോട് ലീലാകൃഷ്ണൻ പി

ഗോപി മണമ്പൂർ രാജൻ ബാബു എന്നിവർ നേതൃത്വം നൽകും നൃത്താർച്ചന പാട്ടരങ്ങ് കവികളുടെ വിദ്യാരംഭം തുടങ്ങിയവയും വിവിധ ദിവസങ്ങളിലായി നടക്കും നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ ആവിഷ്ക്കരിച്ച പുനർജ്ജനി ജില്ലാ കൃാമ്പ് കോഴിക്കോട്ട് ഇന്ന് സമാപിക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പ്രത്യേകിച്ച് ആശുപത്രികളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ സന്നദ്ധ സേവനത്തിലൂടെ ഉപയോഗക്ഷമമാക്കുന്നതാണ് പുനർജ്ജനി പദ്ധതി മെഡിക്കൽ കോളജ് ചെസ്റ്റ് ഡെന്റൽ ആശുപത്രികൾ എന്നിവയിലേതടക്കം ഒന്നേമുക്കാൽ കോടി രൂപയോളം വരുന്ന ഉപകരണങ്ങൾ നന്നാക്കിയെടുത്തതായി റീജ്യണൽ കോ ഓർഡിനേറ്റർ അശ്വിൻരാജ് പറഞ്ഞു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷ ൻ കോഴിക്കോട് ജില്ലാ പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി

വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിനു ശേഷം ജാഥ ബുധനാഴ്ച വൈകിട്ട് മുതലക്കുളം മൈതാനത്ത് സമാപിക്കും ഫ്രാൻസിസ് റോഡിനെയും വലിയങ്ങാടിയെയും ബന്ധിപ്പിക്കുന്നതിന് നാലാം പ്ലാറ്റ്ഫോമിന് സമീപത്തുകൂടി ഫ്ളൈഓവർ നിർമ്മിക്കുന്ന കാര്യം റെയിൽവെയുടെ സജീവ പരിഗണനയിലാണെന്ന് എം